പന്ത്രണ്ടിലേറെ മേഖലകളിൽ സഹകരണത്തിന് ഇരുരാജ്യങ്ങളും കരാർ ഒപ്പു വെച്ചു

കണ്ണൂർ വയനാട് ജില്ലകളിൽ അതീവ ജാഗ്രത തെക്കൻ ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധൃത

ൾ ൽ ൾ സൌദി അറേബ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി പുലർച്ചെ റിയാദിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരി ച്ചു സൌദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് കിരീടാവ കാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവരുമായി അദ്ദേഹം ചർച്ച നടത്തി പന്ത്രണ്ടിലേറെ മേഖലകളിൽ സഹകരിക്കാൻ കൂടിക്കാഴ്ച്ച യിൽ ധാരണയായി ഇന്ത്യ സൌദി അറേബൃ തന്ത്രപ്രധാന പങ്കാളിത്ത കൌൺസിൽ രൂപീകരണത്തിന് ഇരുരാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചു സൌദി അറേ ബൃയിൽ റുപേ കാർഡ് പ്രാബല്യത്തിലാക്കുന്ന ധാരണാപത്രവും ഒപ്പി ട്ടു

മേഖലയിൽ നിന്ന് ഭീക രവാദം പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സഹകരണം ശക്തി പ്പെടുത്താനും ചർച്ചകളിൽ ധാരണയായി വാളയാറിൽ പ്രായപൂർത്തിയാവാത്ത രണ്ട് പെൺകുട്ടികളുടെ അസ്വാഭാവിക മരണത്തിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ രണ്ട് ദിവസത്തിനകം ഗവൺമെന്റ് അപ്പീൽ നൽകും കേസിലെ തുടരനേഷണത്തിനും പുനർ വിചാരണക്കും അനുമതി തേടുന്ന ഹർജികളും അപ്പീലിനൊപ്പം നൽകും കേസിലെ നിയമപരമായ എല്ലാ സാധ്യതകളും തേടാൻ ഡയറ ക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് മഞ്ചേരി ശ്രീധരൻനായരെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തി

സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ട റിയും കൂടിക്കാഴ്ച്ചയിൽ പങ്കെടുത്തു വാളയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടി കൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പള്ളത്ത് ബിജെപി നട ത്തുന്ന നൂറു മണിക്കൂർ സമരം തുടരുന്നു സമരത്തിൽ പങ്കെടു ക്കാൻ ദേശീയ നേതാക്കൾ ഇന്ന് വാളയാറിലെത്തും

എഫ് പ്രവർത്തകർ ഇന്ന് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ഇരകൾക്കുവേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കു കയും ചെയ്യുന്ന നിലപാടാണ് ഗവൺമെന്റിനെന്ന് കോഴിക്കോട് ഡിസി പ്രസിഡന്റ് ടി

വാളയാർ പെൺകുട്ടി കൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മറ്റി സംഘടിപ്പിച്ച കാൻഡിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാളയാർ സംഭവത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകളുടെ കൂട്ടായ്മ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ പ്രതിഷേധ ജാല പരിപാടി സംഘടിപ്പിച്ചു മൂലൃവർദ്ധിത നികുതി കാലയളവിലെ വിറ്റുവരവുമായി ബന്ധ പ്പെട്ട നികുതി നോട്ടീസുകളിൽ വ്യാപാരി സംഘടനകളുമായി ചർച്ച നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു സോഫ്റ്റ്വെയറിലെ പിഴവ് മൂലമാണ് ഒട്ടേറെ വ്യാപാരികൾക്ക് നോട്ടീസ് അയക്കാൻ കാര ണമെന്ന് മന്ത്രി ഡോ

ഇതിന്റെ അടിസ്ഥാനത്തിൽ വാറ്റ് കുടിശ്ശിക നോട്ടീസുകൾ പിൻവലിച്ചേക്കും എന്നാൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് കണ്ടെത്തിയ നികുതി വെട്ടിപ്പുകളിൽ അന്വേഷ ണവും നടപടിയും തുടരും നോട്ടീസുകളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരവും മാർച്ചും സംഘടിപ്പിച്ചിരുന്നു അട്ടപ്പാടിയിൽ ഏറ്റുമുട്ടലിൽ മരിച്ച നാലു മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ട ത്തിനായി തൃശൂർ മെഡിക്കൽ കോളജിലേക്ക് മാറ്റി ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തായി പൊലീസ് പറ ഞ്ഞു അട്ടപ്പാടി മേഖലയിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി

അതിർത്തികളിൽ പരിശോധന കർശനമാക്കി

കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കേന്ദ്ര ആയുർവേദ ഹെൽത്ത് ടൂറിസത്തിന്റെ ഭാഗമായി പുത്തൂർ ശ്രീനാരായണ ആയൂർവേദ മെഡിക്കൽ കോളേജിൽ പരമ്പരാഗത രീതിയിൽ പണികഴിപ്പിച്ച ആയുർമിത്ര ചികിത്സ കോട്ടേജുകൾ വി

ദീൻ ദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ സംഘാടകസമിതി ആലോചനായോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും സ്ഥാനങ്ങൾക്ക് പിന്നാലെ ഒരിക്കലും പോയിട്ടില്ലെന്ന് നിയുക്ത മിസോറാം ഗവർണർ പി

ശ്രീധരൻപിള്ള ചെങ്ങന്നൂ രിൽ പറഞ്ഞു ചെങ്ങന്നൂർ വെൺമണിയിലെ കുടുംബവീട്ടിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ കെപിസിസി രാഷ്ട്രീ യകാര്യ സമിതി ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും സിറ്റിംഗ് സീറ്റുകളായ വട്ടിയൂർക്കാവിലേയും കോന്നിയിലേയും തോൽവിയും എറണാകുളത്ത് വോട്ട് കുറഞ്ഞതും യോഗത്തിൽ ചർച്ച ചെയ്യും കെപിസിസി പുനസംഘടന സംബന്ധിച്ച അന്തിമ ചർച്ചയും യോഗ ത്തിൽ ഉണ്ടായേക്കും

നാളെ മല പ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും

കടലിൽ പോയ വർ എത്രയും വേഗം മടങ്ങിയെത്തണമെന്നും നിർദ്ദേശമുണ്ട്

എസ് എൽ ഫുട്ബോളിൽ ജംഷധ്പൂരിന് തുടർച്ചയായ രണ്ടാം വിജയം ഹൈദരാബാദ് എഫ് സിയെ ്രുഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് ജംഷെഡ്പൂർ തോൽപ്പിച്ചത് ഇന്ന് ചെന്നൈയിൻ എഫ്

കെ യെ നേരിടും

അടുത്ത മാസം അഞ്ച് മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ദക്ഷിണമേഖല യോഗൃതാ മത്സരങ്ങൾ ൾ സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മൽസരത്തിൽ വയനാടിനും തിരുവനന്തപുരത്തിനും ജയം മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൽസരത്തിൽ ഇന്ന് തിരുവനന്തപുരം വയനാടിനേയും കണ്ണൂർ കോട്ടയത്തേയും ഇടുക്കി എറണാകുളത്തേയും കാസർകോഡ് കൊല്ലത്തേയും നേരിടും കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബോൾ മത്സര ത്തിൽ സന്റ് കോളജ് ജോസഫ് ദേവ ഗി രി ഇഎംഇഎ കോളജ് കൊണ്ടോട്ടി ഫാറൂഖ് കോളജ് കോഴിക്കോട് ഐഎസ്എസ് കോളജ് പെരിന്തൽമണ്ണ ടീമുകൾ സെമിയിൽ പ്രവേ ശിച്ചു സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും സർവകലാശാല ടീം സെലക്ഷൻ ട്രയൽസ് രാവിലെ തുടങ്ങും

സംസ്ഥാന റോളർ സ്കേറ്റിംഗ് മത്സരങ്ങൾക്ക് വടകര മുനിസി പ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി എഴുനൂറോളം പേർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്പീഡ് സ്കേറ്റിംഗ് റോഡ് മത്സരങ്ങൾ നവം ബർ രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് സ്പെഷ്യൽ എക്കണോ മിക്സ് സോൺ സൈബർ പാർക്ക് സെന്ററിൽ നടക്കും അധിനിവേശം സാംസ്കാരിക രംഗത്ത് കൂടിയും കടന്നുവരു മെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതിനെതിരെ രംഗ ത്തുവരണമെന്ന് അദ്ദേഹം നിർദേശിച്ചു തിരുവനന്തപുരത്ത് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം കവി കെ സച്ചിദാനന്ദന് സമ്മാനിക്കുകയാ യിരുന്നു മുഖ്യമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ നാളെ രാഷ്ട്രീയ ഏകതാ ദിവസം ആചരിക്കും എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയ ഏകതാ പ്രതിജ്ഞയെടു ക്കും സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ ദേശീയോദ്ഗ്രഥന സന്ദേശം പ്രപച രി പ്പി ക്കുന്ന റൺ ഫോർ യൂണിറ്റി പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണഭാഷാ പുരസ്ക്കാരത്തിന് കണ്ണൂർ ജില്ല അർഹമായി ഭരണഭാഷാ പ്രവർത്തനങ്ങൾ മികച്ച രീതി യിൽ സംഘടിപ്പിച്ചതിനാണ് പുരസ്കാരം മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മന്ത്രി സി രവീന്ദ്രനാഥ് പുരസ്കാരം സമ്മാനിക്കും

മാത്യുവിനേയും ഇന്ന് ചോദ്യം ചെയ്യും ആൽഫൈൻ കേസുമായി ബന്ധപ്പെട്ടാണ് ജോളിയെ കസ്റ്റഡിയിൽ ലഭിച്ചത് സിലി കേസുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് ദിവസത്തെക്ക് മാത്യുവിനെ കസ്റ്റ ഡിയിൽ വിട്ടത്

ഇടുക്കിയിലെ പെരിഞ്ചാംകുട്ടി തേക്ക് മുള പ്ലാന്റേഷൻ വനഭൂമി യിൽ ആദിവാസികളുടെ കുടിൽകെട്ടി സമരം രണ്ടാം ദിവസത്തേക്ക് കടന്നു ഇന്നലെ പുലർച്ചെ നൂറോളം ആദിവാസി കുടുംബങ്ങൾ വനഭൂമിയിൽ അതിക്രമിച്ചു കയറി കുടിൽകെട്ടുകയായിരുന്നു സ്വാതന്ത്യു സമര പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്ന വയ നാട് പൂൽപ്പള്ളി ഓണിപ്പൊയിലിൽ ഉണിച്ചിരമ്മ നിര്യാതയായി

സംസ്ക്കാരം ഉച്ചകഴിഞ്ഞ് പുൽപ്പള്ളി ഇരുളത്ത് വീട്ടുവളപ്പിൽ നടക്കും ലോക കേരളസഭയുടെ രണ്ടാം സമ്മേളനത്തിൽ മുസ്ലീം ലീഗി ന്റെയോ പോഷക സംഘടനകളുടേയോ പ്രതിനിധികൾ പങ്കെടുക്കി ല്ലെന്ന് സംസ്ഥാനം സെക്ര ട്ടറി കെ

മജീദ് അറിയിച്ചു ജനുവരിയിലാണ് ലോക കേരളസഭ യുടെ രണ്ടാം സമ്മേളനം